ദിവസം ബാക്കി നിൽക്കെ മധ്യപ്രദേശിലും മിസോറാമിലും പ്രചാരണം ഊർജ്ജിത്രം

ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആറ് സ്വർണ്ണവുമായി ചരിത്രം കുറിച്ച് ഇന്തൃയുടെ മേരികോം

കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ്

വോയ്സ് വോട്ടെടുപ്പിന് നാല് ദിവസം മാത്രം ശേഷിക്കെ രണ്ട് സംസ്ഥാനങ്ങളിലും പ്രചാരണം ഊർജ്ജിതമായി

മധ്യപ്രദേശിലും മിസോറാമിലും ബിജെപിയും കോൺഗ്രസും അവസാനവട്ട പ്രചാരണത്തിലെ തിരക്കിലാണ്

പാവപ്പെട്ടവർക്കും കർഷകർക്കും നേരെ മോദി ഗവൺമെന്റ് ഒന്നും ചെയ്യാതെ മൌനംപാലിക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആരോപിച്ചു

ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്രമന്ത്രി ഉമാഭാരതി കോൺഗ്രസ് നേതാക്കളായ ജ്യോതിരാദിത്യ സിന്ധ്യ കമൽ നാഥ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷം യാദവ് എന്നിവരും വിവിധയിടങ്ങളിൽ പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്യുന്നു

സംസ്ഥാന ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഇത്രയധികം വനിതകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്

ജെ പി സ്ഥാനാർത്ഥികളാണ്

സിറ്റിംഗ് എം

എമാരായ അനിതാ ബാദൽ കിരൺ മഹേശ്വരി അനിതാ സിംഗ് മഞ്ജു ബക്ക്മുഖ് ഹംസ സൂര്യകാന്ത വ്യാസ് മുഖ്യമന്ത്രി വസ്തുസ്സ്രാ രാജെ എന്നിവരാണ് ജനവിധി തേടുന്നു ്ബി ജെ പി സ്ഥാനാർത്ഥികളിലെ പ്രമുഷ്യവനീതകൾ സിറ്റിംഗ് എം

എ ശകുന്തളാ റാവത്ത് മുൻക്ട്രേങ് മന്ത്രി ഗിരിജാ വ്യാസ് കോമൺ വെൽത്ത് മെഡൽ ജ്രീയികൃഷ്ണാ പൂനിയ മുൻ എം

ഇന്നുതന്നെ വോട്ടെണ്ണൽ നടക്കും

തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായ ആരോപണൂത്തെത്തുടർന്നാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മറ്റു ച്ചിൽർക്കുമെതിരെ ജാതീയ പരാമർശം നടത്തിയെന്നാണ് ആർോപീണം രാജസ്ഥാനിലെ രാജ്സമാന്ദ് ജില്ലയിലെ റിട്ടേണിർഗ്ഗ് ഓഫീസറാണ് ബി ജെ

സംസ്ഥാനത്ത് നദ്വാരാ മുണ്ഡലത്തിൽ ശ്രീ ജോഷി സ്ഥാനാർത്ഥിയാണ്

മരണമടഞ്ഞവരിൽ സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടും പാണ്ഡവപുര താലൂക്കിലെ കനകാനാമരടി ഗ്രാമത്തിലാണ് അപകടമുണ്ടായത് രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമി തുടങ്ങിയവർ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി

ബീഹാറിലെ ഗയയിൽ പ്രൈമറി സ്കൂൾ അധ്യാപകരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാന് തക്ക മറുപടി നൽകാൻ രാജ്യം എപ്പോഴും സുസജ്ജമാണ്

എന്നാൽ ഇന്ത്യൻ ഭടന്മാർ ഇതിന് ചുട്ട മറുപടി നൽകുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രി പറഞ്ഞു

ആരോഗ്യരംഗത്ത് ്ദേ്ശീയതലത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും ്രകേർളം ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ ഒന്നാമതാണ്ട്സ്നും അദ്ദേഹം പറഞ്ഞു

മറിച്ചുള്ള റിപ്പോർട്ടുകൾ ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു

പരിശോധനാഫലം അനുസരിച്ച് മാത്രമേ രോഗം സ്ഥിരീകരിക്കാനാകൂ എന്നും മന്ത്രി പറഞ്ഞു

ച്ചിതിര്യ്നേട്ടത്തിൽ രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് പ്രധാനമന്ത്രി ന്രേന്ദ്രമോദി തുടങ്ങിയവർ മേരികോമിനെ അഭിനന്ദിച്ചു

എൽ ഇന്നത്തെ നേട്ടത്തോടെ ലോകചാമ്പ്യൻ ഷിപ്പിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം നേടുന്ന വനിതാ താരമെന്ന നേട്ടവും മേരികോം സ്വന്തമാക്കി

നേട്ടത്തോടെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മേരികോമിന്റെ മെഡൽ നേട്ടം ഏഴ് ആയി ആകെ മെഡൽ നേട്ടത്തിലും മേരികോം റിക്കോർഡിട്ടു രാജ്യത്തെ ഓരോ പൌരനും അഭിമാനാർഹമായ മുഹൂർത്തമാണ് ഇതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്വീറ്റ് ചെയ്തു രാജ്യത്തെ വനിതകൾക്കും കുട്ടികൾക്കും മേരികോമിന്റെ നേട്ടം പ്രചോദമാകട്ടെയെന്ന് രാഷ്ട്രപതി ആശംസിച്ചു മേരികോമിന്റെ നേട്ടം രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ അഭിനന്ദനാർഹമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

പനാജിയിലെ രാജ്യാന്തര ചലച്ചിത്ര വേദിയിൽ നിന്ന് പ്രമുഖ ചലച്ചിത്ര നിരൂപകൻ എ